കോവിഡിനെ ചെറുക്കാൻ നാടാകെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയ ഘട്ടത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണതെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി അതിഥി തൊഴിലാളികളോട് എല്ലാ ഘട്ടത്തിലും കരുതലോടെ നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളം എന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു അതിഥി തൊഴിലാളികളെന്ന സംബോധന തന്നെ ഇവർക്കുനേരെ സംസ്ഥാനം കാണിക്കുന്ന കരുതലിന് തെളിവാണ് പായിപ്പാട്ട് കൂട്ടത്തോടെ അവർ തെരുവിൽ ഇറങ്ങിയതിനു പിന്നിൽ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ പ്രേരണ സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത്തരക്കാരെ അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരും പായിപ്പാട്ട് സംഭവം സമൂഹത്തിൽ രൂക്ഷമായ പ്രതികരണത്തിന് കാരണമായിട്ടുണ്ട് ശാരീരിക അകലം പാലിക്കാതെ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയത് കൊറോണ പ്രതിരോധത്തിന്റെ അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാണെന്ന് ജനങ്ങൾ കരുതിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നല്കി

അവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തെറ്റിദ്ധാരണകളിൽ കുടുങ്ങാതെ ഗവൺമെന്റിനോട് സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

കണ്ണൂർ ജില്ലയിൽ എട്ടുപേരിലും കാസർകോട് ജില്ലയിൽ ഏഴുപേരിലുമാണ് കോവിഡ് കണ്ടെത്തിയത് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ ഓരോരുത്തർക്കും രോഗം സ്ഥിരീകരിച്ചു

രണ്ടുപേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സാമൂഹ്യ വ്യാപനം തടയാൻ വേഗത്തിൽ ഫലം ലഭ്യമാകുന്ന റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി കെ

ഇതിന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലിന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്

രുദ കണ്ണൂർ ജില്ലയിൽ എട്ട് പേരിലാണ് ഇന്നലെ കോവിഡ് കണ്ടെത്തിയത് ജില്ലാപ്രതിനിധി കെ ഒ ശശിധരൻ

ഇയാളുമായി സമ്പർക്കമുണ്ടായിരുന്ന എല്ലാവരെയും കണ്ടെത്തിവരികയാണ്

ഇതിൽ രണ്ടു പേർ നേരെത്ത രോഗം ഭേദമായി ആശുപത്രി വിട്ടു

വിശദാംശങ്ങളുമായി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ഇയാളെ ഇടുക്കി മെഡിക്കൽ കോളേജ് ഐസോലേഷൻ വാർഡിലേക്ക് മാറ്റിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കോട്ടയം പ്രതിനിധി ടോംമാത്യു

ശനിയാഴ്ചയാണ് രോഗലക്ഷണങ്ങൾ കണ്ടത് എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യപ്രവർത്തകന്റെ നില തൃപ്തികരമാണ്

പുറത്തുനിന്നും വരുന്നവരെ അതിർത്തിയിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് നിരീക്ഷണത്തിലുള്ളവരുടെ സംഖ്യയിൽ രണ്ടുദിവസം കൊണ്ട് വലിയ വർദ്ധനവ് ഉണ്ടായതെന്ന് മന്ത്രി എ

രദേശ അതിഥി തൊഴിലാളികളുടെ ഹെൽത്ത്കാർഡ് പരിശോധന കൃത്യമായി നടത്താനും ഭക്ഷണവും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കാനും മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട്ട് നിർദ്ദേശം നൽകി പഞ്ചായത്തുകളിലെ കമ്മ്യൂണിറ്റി കിച്ചണുകളും മന്ത്രി സന്ദർശിച്ചു ഇന്നലെ കോഴിക്കോട്ട് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ആരിലും രോഗബാധയില്ല

ഇന്നലെ പുതിയതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നാലുപേരെയാണ്

ഓരോ ഗ്രൂപ്പിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിലെയും പ്രതിനിധികളുണ്ടാകും

ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും ഗ്രൂപ്പുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ട് രദേശ ലോക്ഡൌണിൽ കഴിയുന്ന ദിവസ വേതനക്കാർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും സഹായം നൽകാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടി സംസ്ഥാന കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടു കേരളം ഉൾപ്പെടെ സംസ്ഥാന അധ്യക്ഷന്മാരുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു ലോക്ഡൌൺ ഫലപ്രദമായി നടപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് നദ്ദ സംസ്ഥാന ഘടകങ്ങളോട് നിർദ്ദേശിച്ചു ദേഴ ലോക്ഡൌൺ വേളയിൽ പ്രത്യേക പാർസൽ ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ തീരുമാനിച്ചു അവശ്യവസ്തുക്കളുടെയും ഭക്ഷണ സാധനങ്ങളുടെയും മെഡിക്കൽ ഉല്പന്നങ്ങളുടെയും ചെറിയ പാക്കറ്റുകൾ തടസ്സമില്ലാതെ എത്തിക്കുന്നതിനാണ് നടപടി ദേദ ലോക്ഡൌൺ കാര്യക്ഷമമാക്കുന്നതിന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ആശയ വിനിമയം നടത്തി സാമൂഹ്യ അകലം പാലിക്കൽ കുടിയേറ്റ തൊഴിലാളികളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ പരിഹാര നടപടികളെടുക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു

ദേശ കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യേണ്ടവർക്ക് ഓൺലൈൻ സംവിധാനം സജ്ജമാക്കിയതായി സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

മൊബൈൽ ലിങ്കിൽ ലഭിക്കുന്ന സത്യവാങ്മൂലം മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജായി നൽകും യാത്രാവേളയിൽ ഇത് പരിശോധനയ്ക്ക് ഹാജരാക്കിയാൽ മതി അപേക്ഷ നിരസിച്ചാലും വിവരം മൊബൈലിൽ ലഭിക്കും വാഹനപാസ് അത്യാവശ്യഘട്ടങ്ങളിൽ ഒഴിവാക്കാനാവാത്ത യാത്രകൾക്ക് മാത്രമായിരിക്കും രണ്ട് സേവനങ്ങളും ആഴ്ചയിൽ പരമാവധി മൂന്ന് തവണ മാത്രമായിരിക്കും നൽകുകയെന്ന് പൊലീസ് മേധാവി അറിയിച്ചു

കോവിഡ് സാഹചര്യത്തിൽ എല്ലായിടത്തും തടസ്സമില്ലാതെ വൈദ്യുതിയെത്തിക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാരെ അദ്ദേഹം അഭിനന്ദിച്ചു കഴിഞ്ഞ കിവസം കാസർകോട്ട് പുതുതായി സജ്ജീകരിച്ച ആശുപത്രികളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ വൈദ്യുതിയെത്തിക്കാൻ കെ എസ് ഇ ബിയ്ക്ക് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു ദേദ കോട്ടയം ചങ്ങനാശേരി പായിപ്പാട്ട് ലോക്ക് ഡൌൺ ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ തെരുവിൽ പ്രതിഷേധിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാപൊലീസ് മേധാവി വിജയ്ദേവിനെ കളക്ടർ ചുമതലപ്പെടുത്തി ലോക്ക്ഡൌൺ ലംഘിച്ച രണ്ടായിരത്തോളം തൊഴിലാളികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്

ഇവർക്ക് സൌജന്യ ഭക്ഷണവും മറ്റു സൌകര്യങ്ങളും നൽകും

അബ്ദുൽ നാസർ അറിയിച്ചു ഇവരെ എത്തിച്ച കോൺട്രാക്ടർമാർ കൂലിയും ഭക്ഷണവും മറ്റ് സൌകര്യങ്ങളും ഉറപ്പാക്കണം

ഇതിന് ലംഘനമുണ്ടായാൽ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർക്കും താമസ സ്ഥല ഉടമകൾക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കലക്ടർ മുന്നറിയിപ്പ് നൽകി